ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഏറെ പ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

ഐകൃരാഷ്ട്ര സഭാ സാമ്പത്തിക് സാമൂഹിക സമിതിയുടെ ഉന്നത തലൂർയോഗ്ത്തിന്റെ നാളെ നടക്കുന്ന സമാപന ചുടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

തിരുവനന്തപുരത്ത് കോവിഡ് സാഹചര്യം രൂക്ഷം

ബിഹാറിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാഴ്ചത്തേക്ക് സമ്പൂർണ ലോക്ഡൌൺ

ഇന്ത്യാ ്യൂറോപ്യൻ യൂണിയൻ സഹകരണം ആഗോള സമാധാനത്തിന്റും സുസ്ഥിരതയ്ക്കും ഏറെ പ്രധാനമാണെന്നും പ്രധാനമുന്ത്രീ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം വ്യേണം ആരോഗ്യ രംഗവും ജനങ്ങളും ഒരുപോലെ വെല്ലുവിളി ക്നേരിടുന്ന സമയമാണ് ഇത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയ്ക്കും സ്വാഭാവിക പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മ്ഇന്തൃ യൂറോപൃൻ യൂണിന് നല്കുന്ന പ്രാധാനൃം വളരെ വലുതാണെന്നും ഇതിൽ നന്ദിയുണ്ടെന്നും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ പറഞ്ഞു

സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം നോർവെ പ്രധാനമന്ത്രിയും ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പങ്കെടുക്കും

എൻ സുരക്ഷാ സമിതിയിൽ ഇന്ത്യ താത്കാലിക അംഗത്വം നേടിയതിനു ശേഷം ഐക്യരാഷ്ട്ര സഭയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ അഭിസംബോധനയാണിത്

കരസേനാ മേധാവി ് ജനറൽ എം

ക്ലിഴക്കൻ ലഡാക്കിലെ സുരക്ഷാ സ്ഥിതിഗതികൾ ഇരുവരും പ്പില്യിരുത്തും

അതിർത്തിയിൽ ഇന്ത്യാ ചൈന സംഘർഷം ഉടലെടുത്ത ശേഷം രാജ്യരക്ഷാ മന്ത്രി നടത്തുന്ന ആദ്യ ലഡാക്ക് ്സന്ദർശനമാണിത്

ഒറ്റ ദിവസം ഇത്രയുമധികം കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ്

അട്ടക്കുളങ്ങരയിലെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നഗരത്തിലെ പാർപ്പിട കേന്ദ്രത്തിൽ ് ഒരുമിച്ചു താമസിക്കുന്നവരാണ് ഇവർ

ഫിസിക്സ് കെമിസ്ട്രി പരീക്ഷയാണ് രാവിലെ നടന്നത്

ഈ കേസിലെ സുപ്രീം കോടതി വിധിയാകും സംസ്ഥാനത്തെ തുടർന്നുള്ള ഖനനം സംബന്ധിച്ച് തീരുമാനമുണ്ടാക്കുക

ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

കഴിഞ്ഞ ് മൂന്നാഴ്ചയ്ക്കിടെ രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന സാഹചര്യത്തിലാണ് ലോക്ഡൌൺ നടപ്പാക്കാൻ ബിഹാർ സർക്കാർ തീരുമാനിച്ചത് അവശൃ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം പ്രവർത്തിക്കാം

രോഗബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

വാക്സിൻ നൽകുന്നതിലൂടെ തടഞ്ഞുനിർത്തപ്പെട്ട അസുഖങ്ങൾ തിരികെ വരാതിരിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണ്